ഓർഡിനൻസിന് രാഷ്ട്രപതിയുടെ അംഗീകാരം

പ്രകീർത്തിച്ച് അ്മേരിക്ക പാക് കേന്ദ്രീകൃത ഭീകരസംഘം മേഖലയ്ക്ക് ഭീഷണിയെന്നും ട്രംപ് ഭരണകൂടം

ഇന്നലെ കേന്ദ്ര നിയമ മന്ത്രാലയമാണ് വിജ്ഞാപനത്തിലൂടെ ഇക്കാരൃം വൃക്തമാക്കിയത് ഓർഡിനൻസിന് ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഇതനുസരിച്ച് പെട്ടെന്നുളള മുത്തലാഖിന് മൂന്ന് വർഷംവരെ ജയിൽ ശിക്ഷ ലഭിക്കും തലാഖിന് ഇരയാകുന്ന സ്ത്രീയോ അവരുടെ ബന്ധുക്കളോ പരാതി നൽകിയാൽ മാത്രമേ മുത്തലാഖ് കുറ്റകരമായി കണക്കാക്കൂഎന്ന് കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു മജിസ്ട്രേറ്റിന് ഭാര്യയുടെ മൊഴി കേട്ട ശേഷം ഭർത്താവിന് ജാമ്യം അനുവദിക്കാനാവും

ജീവനാംശം സംബന്ധിച്ച് മജിസ്ട്രേറ്റിന് തീരുമാനമെടുക്കാം ഇത്തരം ഒരു നിയമം അനിവാര്യമായതിനാലാണ് ഓർഡിനൻസ് പുറത്തിറക്കിയതെന്നും കേന്ദ്രി വൃക്തമാക്കി മുത്തലാഖ് വിശ്വാസം ആരാധന മതം എന്നിവയുടെ പ്രശ്നമല്ലെന്നും മറിച്ച്ലിംഗ സമത്വം നീതി സ്ത്രീകളുടെ അന്തസ്സ് എന്നിവ സംബന്ധിച്ച വിഷയമാണെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു

വലിപ്പത്തിലും സൌകര്യത്തിലും ഇത് ലോകത്തെ മികച്ച കേന്ദ്രമായിരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറി പ്പിൽ പറയുന്നു ദേശീയ അന്തർദേശീയ സമ്മേളനങ്ങൾക്കും പ്രദർശനങ്ങൾക്കും കേന്ദ്രം വേദിയാകും

ആഭ്യന്ത്രപ്പുകുപ്പു സെക്രട്ടറി ബി ആർ ശർമ്മ യുടെ നേതൃത്വത്തിലുള്ള സ്ംഘം അഞ്ച് ദിവസം സംസ്ഥാനത്തു ണ്ടാകും കേന്ദ്ര സംഘ്യ ന്റൊളെ കോഴിക്കോട് ജില്ല സന്ദർശിക്കും വൈകുന്നേരം സംഘം കണ്ണൂരിലേക്ക് പോകും

തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത അവസരങ്ങളിൽ സാമ്പത്തിക സഹായർ നൽകുന്നതാണ് പദ്ധതി കേന്ദ്രമന്ത്രി സന്തോഷ് ഗാംങ്വാറിന്റെ അധ്യക്ഷതയിൽ ന്യൂ ഡൽഹിയിൽ ചേർന്ന യോഗമാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്ന തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത സമയങ്ങളിൽ സാമ്പത്തിക സഹായം അവരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ ലഭ്യമാകും തൊഴിൽ നഷ്ടപ്പെട്ട് പുതിയ തൊഴിൽ തേടുന്നവർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് പദ്ധതി

കേന്ദ്ര മന്ത്രി പീയുഷ് ഗോയൽ ഇന്നലെ മുംബൈയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

തീവ്രവാദത്തിനെതിരെയുള്ള വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം സ്തൂചിപ്പിച്ചിരിക്കുന്നത്

തീവ്രവാദത്തിനെതിരെ പ്രഅമേരിക്ക ഉൾപ്പെടെ സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ ഫലപ്രദമായ നടപടികളാണ് കൈക്കൊള്ളുന്നത് എന്നാൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നത് തുടരുകയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു തീവ്രവാദത്തോടുള്ള അമേരിക്കയുടെ ആശങ്കകളോട് പാകിസ്ഥാൻ വേണ്ട പ്രതികരിക്കുന്നില്ലെന്നും തീവ്രവാദ സംഘടനകൾക്ക് സുരക്ഷിത താവളമാണ് പാകിസ്ഥാന്റെ പല ഉൾപ്രദേശങ്ങളെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ ഭൌതികാ ശരീരം സംസ്കരിച്ചതായി രാജ്യരക്ഷാമന്ത്രാലയം വാർത്താകുറിപ്പിൽ അറിയിച്ചു

ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡൂ റുമാനിയൻ പ്രധാനമന്ത്രി വിയോറിക ഡൻസിലയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമായത് റുമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിലായിരുന്നു കൂടിക്കാഴ്ച ഡാൻസിലയെ ശ്രീ

വാർത്താ സമ്മേളനത്തിന് ശേഷം ഉപരാഷ്ട്രപതി ഇന്ത്യ റുമാനിയ വ്യാപാര ഫോറത്തെ അഭിസംബോധന ചെയ്തു രാജ്യം മാറ്റത്തിന്റെ പാതയിലാണെന്നും ഇത് റുമാനിയയിലെ വൃവസായസംരംഭകർക്ക് നല്ലൊരു അവസരമാണെന്നും ഫോറത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ നായിഡു വൃക്തമാക്കി

നവാസ് ഷെരീഫിന്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയിലെ രണ്ടംഗ ബഞ്ച് വിധി റദ്ദാക്കുകയും മൂവരേയും വിട്ടയക്കാൻ ഉത്തരവിടുകയുമായിരുന്നു ഷെരീഫിന്റെ സഹധർമ്മിണി കുൽസും നവാസ് അർബുദരോഗം ബാധിച്ച് ലണ്ടനിൽ മരണമടഞ്ഞ് ഒരാഴ്ചയ്ക്ക് പിന്നാലെയാണ് കോടതിവിധി

പാകിസ്ഥാനെ എട്ട് വിക്കറ്റിനാണ് ഇന്ത്യാ പരാജയപ്പെടുത്തിയത്

ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിങ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഭുവനേശ്വറിന്റെ ആദ്യ ഓവറിൽ ഓപ്പണർ ഇമാം ഉൽ ഹഖ് പുറത്തായി

പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ അടുത്ത മത്സരം ഞായറാഴ്ചയാണ്

കാണാതായവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു

പാലസ്തീനിലെ സമാധാന ശ്രമങ്ങളിലും പുനരുദ്ധാരണ പ്രവർത്തന ങ്ങളിലും പങ്കാളികളാകുന്ന യു എന്നിലെ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്

എന്നാൽ ട്രംപ് ഭരണകൂടം സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുകയായിരുന്നു

വർക്കിംഗ് പ്രസിഡന്റുമാരായി എം ഐ ഷാനവാസ് കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ ചുമതലയേൽക്കും യു ഡി എഫ് കൺവീനറായി ബെന്നി ബഹനാനേയും പ്രചാരണ സമിതി അധ്യക്ഷനായി കെ മുരളീധരനേയും നിയമിച്ചു

ചോദൃം ചെയ്യൽ ഇന്ന് തുടരും അതിനിടെ ബിഷപ്പിനെ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിലെ സമരപന്തലിൽ അറസ്റ്റ് നിരാഹാരത്തിലായിരുന്ന പരാതിക്കാരായ കന്യാസ്ത്രീയുടെ സഹോദരിയെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി